ഗുണകരമാകുമെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ

ഐ മാരുട്ടെ പാസിങ്ങ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു

പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം ഇന്ന് നബിദിനം

മത്സരം ഇന്ന് നാഗ്പൂരിൽ

കൂടുതൽ വനിതകൾ പോലീസ് സേനയിലേക്ക് വരുന്നത് പോലീസിന് ഗുണകരമാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ പ്രശ്നങ്ങൾ വനിതാ പോലീസിനോട് തുറന്നു സംസാരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു കഠിനമായ കായിക പരിശീലനമാണ് വനിതാ എസ് ഐ മാർ പൂർത്തിയാക്കിയതെന്നും അടിസ്ഥാന പരിശീലനം കൂടാതെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിനുളള പ്രത്യേക കമാന്റോ ട്രെയിനിങ് കമ്പ്യൂട്ടർ ഡ്രൈവിങ് നീന്തൽ യോഗ കളരി എന്നിവയിലും വിദഗ്ദ്ധ പരിശീലനം നൽകിയിട്ടുണ്ട് കമാൻഡോ സേന സൈബർ ഫോറൻസിക് മേഖലകളിലേക്കും കൂടുതൽ വനിതകൾ എത്തുന്നത് സേനയ്ക്ക് അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

പൂഴ്യുടെ സുഗമമായ ഒഴുക്കിനും പുഴയുടെ ഇരുവശവും ബലപ്പെടുത്തി പ്പുഴയോര നടപ്പാത ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണത്തിനുമായാണ് തുക അനുവദിച്ചത് ഹരിതകേരളം മിഷനിൽ ഉൾപ്പെടുത്തിയാണ് നദീപുനരുജ്ജീവന പ്രവൃത്തികൾ നടത്തുന്നത് ചേരമാൻ ജുമാമസ്ജിദ് ഇന്ത്യയിലെ പൌരാണിക മുസ്തിം ദേവാലയമായ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാമസ്ജിദിന്റെ പ്രൌഢി നിലനിർത്തിക്കൊണ്ടുള്ള പുനരുദ്ധാരണ പ്രവർത്തന പദ്ധതിയുടെ ഉദ്ഘാടനം വൈകുന്നേരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവ്വഹിക്കും സംസ്ഥാന ധനകാര്യമന്ത്രി ഡോ

ബെന്നി ബഹനാൻ എം

ബാലകിരൺ നഗരസഭ ചെയർമാൻ കെ

ജൈത്രൻ ചേരമാൻ ജുമാമസ്ജിദ് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ഡോ

മുഹമ്മദ് സെയ്ദ് തുടങ്ങിയവർ പങ്കെടുക്കും

പള്ളികളിലും വീടുകളിലും പ്രത്യേക പ്രാർത്ഥനകളുമായി ഭക്ത്യാദരപൂർവ്വം വിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നു

അയോധ്യ ക്ഷേസിന്റെ വിധി പറഞ്ഞ സാഹചര്യത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾക്ക് നിയന്ത്രണ മേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സമുചിതമായി തന്നെ വിശ്വാസകിൾ ഈ ദിനം ആഘോഷിക്കുകയാണ് കാസർകോട് ജില്ലയിൽ നിയന്ത്രണങ്ങളോടെ നബിദിന റാലി നടത്താൻ കളക്ടർ അനുമതി നൽകിയിട്ടുണ്ട് മലപ്പുറത്ത് ഇന്നലെ നടത്താൻ നിശ്ചയിച്ച റാലി അടുത്ത ശനിയാഴ്ചത്തേക്ക് മാറ്റി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തൃശ്ശൂരിൽ തുടക്കമായി നവീകരിച്ച ആസ്ഥാന പ്ര മുന്ദിരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവ്ഷിച്ചു തൃശ്ശൂർ ഠൌൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി തോമസ് ഐസ്സക് അധ്യക്ഷനായി പാലം ഉദ്ഘാടനം കായംകുളം ദേവീകുളങ്ങര കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൂട്ടുംവാതുക്കൽക്കടവ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം വൈകുന്നേരം മന്ത്രി ജി

കണ്ടല്ലൂർ തെക്ക് ഗുരു ക്ഷേത്ര അങ്കണത്തിൽ നടക്കുന്ന പരിപാടിയിൽ യു പ്രതിഭ എംഎൽഎ അധ്യക്ഷത വഹിക്കും മന്ത്രി തോമസ് ഐസക്ക് മുഖ്യാതിഥിയാകും

ആരിഫ് എംപി ജില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണുഗോപാൽ എന്നിവർ പങ്കെടുക്കും

അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി രണ്ടു ദിവസത്തിനകം വെള്ളം എത്തിക്കും പൈപ്പ് പൊട്ടൽ തുടർ സംഭവമായതോടെ വിഷയത്തിൽ ശാശ്വത പരിഹാരത്തിനായി നാളെ തിരുവനന്തപുരത്ത് പ്രത്യേകയോഗം വിളിച്ചിട്ടുണ്ട് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും

ഹൌറ ഹൂഗ്ലി മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒഡീഷ തീരത്ത് അതീവ സുരക്ഷാ നിർദ്ദേശം നൽകിബംഗാളിൽ റോഡ് റെയിൽ ഗതാഗതം സ്തംഭിച്ചു

ഇന്ന് വൈകിട്ടോടെ ബുൾ ബുൾ ബംഗ്ലാദേശിലേക്ക് കടന്ന് ദുർബലമാകും ബുൾ ബുൾ ചുഴലിക്കാറ്റിന്റെ ഭാഗമായി കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

മൂന്നു മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ വിജയം നേടി ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് ഇന്നു ജയിക്കുന്ന ടീം പരമ്പര സ്വന്തമാക്കും കളിയുടെ തത്സമയ വിവരണം ആകാശവാണിയുടെ രാജധാനി എഫ് എം റെയിൻ ബോ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു എഫ്

യും ചെന്നൈയിൻ എഫ്

യും ഏറ്റുമുട്ടും

നിലവിലെ ചാമ്പ്യൻമാരാണ് ബംഗളൂരു എഫ്

ിക് മുൻ ചാമ്പ്യൻമാരാണ് ചെന്നൈയിൻ എഫ്

ചെന്നൈയിന്റ് ട്രിന്നും ബംഗളൂരുവിന് മൂന്നു പോയിന്റും വീതമാണ് നിലവിലുള്ളത്

കർണാടക നേരത്തെ തന്നെ ഗ്രൂപ്പ് ബി ചാമ്പ്യൻമാരായി ഫൈനൽ റൌണ്ടിലേക്ക് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്

വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും

അസാപ് ഇൻട്രോ ി മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നവീനമായ തൊഴിൽ മേഖല കണ്ടെത്താൻ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അസാപിന്റെ സ്കിൽ മിത്ര പദ്ധതി തയ്യാറാവുന്നു

വോയിസ് അനുയോജ്യമായ തൊഴിൽമേഖല തെരഞ്ഞെടുക്കുന്നതിനു പരിശീലനം നേടുന്നതിനുമാണ് അസാപ് സ്കിൽമിത്ര ഒരുക്കുന്നത് ലോകമെമ്പാടും തൊഴിൽ നേടാൻ പര്യാപ്തമായ നൈപുണ്യ പരിശീലനമാണിത്

ആർട്ടിഫിഷ്യൽ ഇന്റലിജെൻസ് മുതൽ ബ്ലോക്ക് ചെയിൻ വരെ അനുദിനം മാറുന്ന തൊഴിൽ മേഖലയിലാണ് അസാപ് പരിശീലനം നൽകുന്നത് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് വഴി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് തൊഴിൽ തേടാനും സൌകര്യമുണ്ട്

തലശേരി ജില്ലകോടതിയിൽ പബ്ലിക്ട് പ്രോസിക്യൂട്ടറായിരുന്ന കെ ഇ ഗംഗാധരൻ വിദ്യാർഥി പ്രസ്ഥാന്ത്തിലൂടെയാണ് പൊതുരംഗത്ത് വന്നത് അടിയന്തരാവസ്ഥക്കാലത്ത് ് ജയിലിൽ കിടന്നിട്ടുണ്ട്

കെ ഇ ഗംഗാധരന്റെ നിത്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായിവിജയൻ സിപിഐ എം സംസ്ഥിന്റ് സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ അനുശോചിച്ചു

ക്ഷേത്ര മഠാധിപതി മഹേശ്വരാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ രാവിലെ ചടങ്ങുകൾ ആരംഭിച്ചു